മധ്യപ്രദേശിൽ രാഷ്ടീയപ്രതിസന്ധി തുടരുന്നു മുൻ കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിതൃസിന്ധ്യ ബി ജെ

യിൽ ചേർന്നു

കേരളത്തിൽ നിന്ന് നാല് പേരടക്കം ഏഴ് കോൺഗ്രസ് എം

സംസ്ഥാനത്ത് പ്രളയ ദുരിതാശ്ചാസ നിധി വിതരണം ചെയ്യുന്നതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി

ജെ

രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് ശ്രീ സിന്ധ്യ പറഞ്ഞു ജനങ്ങൾക്കായി വേണ്ടതു പോലെ പ്രവർത്തിക്കാൻ കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോൾ കഴിഞ്ഞിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബാംഗത്തിന്റെ് തിരിച്ചു വരവ് പോലെയാണ് സിന്ധ്യയുടെ പാർട്ടി പ്രവേശനമെന്ന് ബി ജെ

ദേശീയ അധ്യക്ഷൻ ജെ

പാർട്ടിയുടെ മുഖ്യധാരയിൽ തന്നെ ശ്രീ

എൽഎമാർ രാജിവെച്ചതോടെ മധ്യപ്രദേശിൽ ഉടലെടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ്

യും തങ്ങളെ പിന്തുണയ്ക്കുന്ന എം

എം മാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്

ജെ

ഗുരുഗ്രാമിലും കോൺഗ്രസ് എം

എൽ

ജെ

നേതാവ് ഭൂപേന്ദ്ര സിംഗ് അവകാശപ്പെട്ടു എന്നാൽ സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാനാകുമെന്നാണ് മുഖ്യമന്ത്രി കമൽനാഥ് ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെടുന്നത് രാജിവച്ച കോൺഗ്രസ് എം എൽ

ഇവരെ പാർട്ടിയിൽ തിരികെ എത്തിക്കുന്നതിന് മധ്യപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സജ്ജൻ സിംഗ് വർമ്മ ബെംഗലൂരുവിലെത്തി

എ

നിയമസഭയിൽ ബി ജെ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ

യ്ക്ക് ബന്ധമില്ലെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു കോൺഗ്രസിന് അവരുടെ നേതാക്കളെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ആദ്യഘട്ടത്തിൽ അടുത്ത മാസം ഒന്ന് മുതൽ സെപ്റ്റംബർ നടപ്പാക്കുക

ലോക്സഭയിലെ മോശം പെരുമാറ്റത്തെ തുടർന്നാണ് നടപ്പ് സമ്മേളനം അവസാനിക്കുന്നതുവരെ ഇവരെ സസ്പെന്റ് ചെയ്ത്ത്

രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഗുലാംനബി ആസാദിന്റെ ആവശ്യം അംഗീകരിച്ച് വിഷയം ചർച്ച ചെയ്യാമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിക്കുകയായിരുന്നു

ബാങ്ക് പാപ്പരത്വ നിയമഭേദഗതി ധാതു നിയമം എന്നിവയാണ് സഭ ചർച്ച ചെയ്യുക

ഐ

കർണാടക കോൺഗ്രസ് കമ്മിറ്റി അദ്ധ്യക്ഷനായി ഡി

അഫ്ഗാനിസ്ഥാനിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുമെന്ന അമേരിക്കൻ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് അഫ്ഗാൻ സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ വോയ്സ് രാജസ്ഥാൻ ഡൽഹി എന്നിവിട്ടങ്ങളിലും പുതുതായി ഓരോ കേസുകൾ സ്ഥിരീകരിച്ചു

ഇറാനിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ സാമ്പിളുകൾ ശേഖരിക്കാനായി ശാസ്ത്രജ്ഞരടങ്ങുന്ന വിദഗ്ധ സംഘത്തെ അയച്ചിട്ടുണ്ട്

ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ സുരക്ഷിതമായി എത്തിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്തി എസ്

എല്ലാ സുരക്ഷാ പരിശോധനയ്ക്കും വിധേയമാക്കിയാകും തിരികെ എത്തിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ സ്ഥിതിഗതികൾ മന്ത്രിമാരും കൃാബിനറ്റ് സെക്രട്ടറിയും അടങ്ങുന്ന സമിതി സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് കൊറോണ പ്രതിരോധ നടപടികൾ പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തുന്നതായും മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇവരുടെ ഭർത്താവിന്റെ ആരോഗ്യ നിലയും ആശങ്കാജനകമാണ്

രോഗം ഇല്ലാത്തവരെ കൊണ്ടുവരികയും ഉള്ളവരെ അവിടെ തന്നെ ചികിത്സിക്കാനുമാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

നമ്മുടെ രാജ്യത്തെ വിജയൻ പൌരൻമാർ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന സമീപനം അപരിഷ് കൃതമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഫെബ്രുവരി ഒന്ന് മുതലാണ് ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ കപ്പലുകൾക്ക് പ്രവേശനം നിഷേധിച്ചത്

വോയ്സ് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പൽ യാത്രിക്കാരെ താപപരിശോധനയ്ക്ക് ശേഷമേ ഇന്ത്യയിലേക്ക് പ്രവ്വേശനം നൽകാവുവെന്ന് കേന്ദ്ര കപ്പൽ ഗതാഗത മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും കപ്പലിൽ കോവിഡ് ബാധ കണ്ടെത്തിയാൽ ആ കപ്പലിനെ തുറമുഖം വിടാൻ അനുവദിക്കില്ലെന്നും മുന്നറിയിപ്പുണ്ട് കൊറോണ പ്രതിരോധനത്തിന്റെ ഭാഗമായി റെയിൽവേ പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു മതിയായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ റെയിൽവേ ബോർഡിന് നിർദ്ദേശം നൽകി റെയിൽവേ ബോർഡ് ചെയർമാൻ വിനോദ് കുമാർ റീജിയണൽ മാനേജർമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ കോവിഡ് പ്രതിരോധ നടപടികൾ അവലോകനം ചെയ്തു കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ എട്ട് രാജ്യങ്ങളിലെ പൌരൻമാർക്ക് അനുവദിച്ചിരുന്ന റെഗുലർ വിസകളും ഇ വിസകളും റദ്ദാക്കാനും ഇന്ത്യ തീരുമാനിച്ചു ഫ്രാൻസ് ജർമനി സ്പെയിൻ ചൈന ഇറ്റലി ഇറാൻ ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്കാണ് തീരുമാനം ബാധകമാവുക ഇൌ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം മുന്നറിയിപ്പ് നൽകി അനാവശ്യമായ വിദേശയാത്രകൾ ഒഴിവാക്കാനും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ചുമയോ പനിയോ ഉള്ളവർ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ വരാതെ ശ്രദ്ധിക്കണം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകാതെ ക്ണ്ണോ മൂക്കോ വായോ സ്പർശിക്കരുത്

വിഷയത്തിൽ പ്രതിപക്ഷത്തെ ്എൻ ഷംസുദ്ദീൻ കൊണ്ടുവന്ന അടിയന്തിര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതീപുക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്

സാങ്കേതിക കാരണങ്ങളാൽ ചില ഗുണഭോക്താക്കൾക്ക് പണം ലഭിച്ചിട്ടില്ലെന്നും അത് പരിഹരിക്കുമെന്നും പ്രതിപക്ഷത്തിന് മറുപടി നൽകിയ ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ അറിയിച്ചു